വീണ്ടും തുറക്കാം മാർഗ്ഗരേഖ് ക്ട്രേന്ദ്രം പുറത്തിറക്കി

മുന്നിലെത്തി

സംസ്ഥാനത്ത് ക്ടോപിഡ് വ്യാപനം രൂക്ഷം

സംസ്ഥാനത്ത് ഇന്ന് പ്രവർത്തനക്ഷമമാകുന്നു

രാജസ്ഥാൻ റോയൽസ് മത്സരം

സ്കൂളുകളിൽ ശാരീരിക അകലം പാലിക്കുകയും വിദ്യാർത്ഥികളും അദ്ധ്യാപകരും എല്ലായ്പ്പോഴും മുഖാവരണം ധരിക്കുകയും വേണം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സ്വന്തം നിലയിൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കാമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് സ്കൂളുകൾ ഉടൻ തുറക്കൂില്ലെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു

വളരെ ഉയർന്ന തോതിലുള്ള പരിശോധന നേരത്തേ രോഗനിർണ്ണയം നടത്താനും ഫലപ്രദമായ ചികിത്സ നൽകുന്നതിനും സഹായിക്കുന്നതായി ആരോഗൃമന്ത്രാലയം അറിയിച്ചു ഉയർന്ന തോതിലുള്ള പരിശോധനകൾ മരണനിരക്ക് ഗണൃമായി കുറയ്ക്കുന്നുണ്ട്

പരിശോധന കുറഞ്ഞതാണ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് സൂചന

മര്ണനീരക്ക് കുറവാണെന്ന കാരണത്താൽ മഹാമാരിയുടെ സാഹചര്യം നിസാരമായി കാണാനാവില്ലെന്ന് സ്ട്രമൂഹൃ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ

കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുള്ള കച്ചവടക്കാർ തൊഴിലാളികൾ പോർട്ടർമാർ എന്നിവർക്ക് മാത്രമാണ് മാർക്കറ്റിൽ പ്രവേശനാനുമതി

മൂന്ന് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണിത്

നഗരത്തിൽ ആളുകൾ കൂട്ടം കൂടുന്ന ഇടങ്ങൾ സന്ദർശിച്ച കളക്ടർ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തി

യാത്രക്കാർക്ക് നിഷ്പ്രയാസം സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ആപ്പ് ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇത് അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഐ ഫോൺ വിവാദത്തിന് പിന്നിൽ സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കോടിയേരി മാപ്പു പറയണമെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു

മൃഗശാലകൾ സന്ദർശിക്കുന്നവരുടെ അനുഭവും ്മിൿവ്ുറ്റതാക്കാൻ ബജറ്റ് വിഹിതം വർധിപ്പിക്കുമെന്നുംഅ്ദ്ദേഹം പറഞ്ഞു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമ്മീയി കുട്ടികളുമായി സംവദിക്കുക യായിരുന്നു കേന്ദ്രമന്ത്രി

നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായ അനൂപ് മുഹമ്മദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ

എം ബ്രാഞ്ച് സെക്രട്ടറി സനൂപിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യ പ്രതി നന്ദന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവ്ടിച്ചു പ്രതികൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെയുണ്ടെന്ന് കരുതുന്നതുയ്പ്പി പോലീസ് അറിയിച്ചു

മൂന്നു പേരെ അറസ്റ്റ് ചെയ്തു

പാവറട്ടി സ്വദേശി മഹേഷാണ് പൂങ്കുന്നത്തുവെച്ച് ഇന്ന് പുലർച്ചെ പിടിയിലായത്

ജില്ലാ പ്രതിനിധി ആർ

എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം

ഇന്നലെ ദുബായിയിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മികച്ച വിജയം നേടി

ഉഷയുടെ സംസ്ക്കാരം ഉച്ചയ്ക്ക് എറണാകുളം രവിപുരം ശ്മശാനത്ത് നടക്കും